നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്യും

ബിഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ നാളെ

മൂന്നാമത് ഇന്ത്യ അമേരിക്ക് മന്ത്രിതല ചർച്ച ന്യൂഡൽഹിയിൽ ന് ഇന്ന് നടക്കും

ഡൽഹി ക്യാപിറ്റൽസും ഏറ്റുമുട്ടും

ജാഗരൂകമായ ഇന്ത്യ സമൃദ്ധിയുള്ള ഇന്ത്യ എന്നതാണ് സമ്മേളനത്തിന്റെ പ്രമേയം

രാജ്യത്തിനു പുറത്തുള്ള അധികാരപരിധിയിലെ അന്വേഷണത്തിലെ വെല്ലുവിളികൾ അഴിമതിക്കെതിരായ നടപടികൾ ബാങ്ക് തട്ടിപ്പുകൾ ഉൾപ്പെടെയുള്ളവ തടയുന്നതിനുള്ള ക്രമീകരണങ്ങൾ അഴിമതി തടയുന്നതിനുള്ള നിയമത്തിലെ ഏറ്റവും പുതിയ ഭേദഗതികൾ കാര്യശേഷി വർദ്ധിപ്പിക്കലും പരിശീലനവും സാമ്പൂത്തിക് കുറ്റകൃത്യങ്ങൾ സൈബർ കുറ്റകൃതൃങ്ങൾ അന്തർദ്ദേശ്രീയ സംഘടിത കുറ്റകൃതൃങ്ങൾ എന്നിവയിലെ പുതിയ പ്രവണതക്കൾ തുടങ്ങിയ കാര്യങ്ങൾ മൂന്ന് ദിവസത്തെ സമ്മേളനം ചർച്ച് ച്ചെയ്യും

പാർട്ടികളും സ്ഥാനാർത്ഥികളും ഇന്ന് അവസാന വട്ട നിശ്ശബ്ദ പ്രചാരണത്തിലാണ് കോവിഡ് സാഹചര്യത്തിൽ വോട്ടർമാർ മാസ്ക് ധരിച്ചുമാത്രമേ ബൂത്തിലെത്താൻ പാടുള്ളൂവെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട് എല്ലാവരെയും തെർമൽ സ്കാനിനിങ്ങിന് വിധേയമാക്കും

ബാക്കിയുള്ളവർക്ക് പകരം സംവിധാനമൊരുക്കും

അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മൈക്ക് പോംപിയോ പ്രതിരോധ സെക്രട്ടറി മാർക്ക് ടി എസ്പർ എന്നിവർ ചർച്ചയിൽ പങ്കെടുക്കാൻ ഇന്ത്യയിലെത്തിയിട്ടുണ്ട് ഇന്ത്യൻ സംഘത്തിന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിങ് വിദേശകാരൃമന്ത്രി എസ്

ഇന്ത്യ് അമേരിക്ക തന്ത്രപരമായ പങ്കാളിത്തം വിപുലീക്രിക്കു്കയാണ് ചർച്ചയുടെ ലക്ഷ്യം

കഴിഞ്ഞ നാലു വർഷത്തെ നയതന്ത്ര ബന്ധങ്ങൾ ഇരുവരും ചർച്ച ചെയ്തു

സംസ്ഥാന മുഖ്യമന്ത്രിയും പങ്കെടുക്കും

ലഡാക്കിലെ ജനതയ്ക്ക് ശ്രീ അമിത്ഷാ നീന്ദ്രി അറിയിച്ചു

ഗോത്രവർഗ യുവാക്കൾക്കിടയിൽ വൃക്തിത്വ വികസന പരിശീലനം നൽകി യുവ സന്നദ്ധപ്രവർത്തകരെ സൃഷ്ടിക്കുന്നതിനാണ് ഈ മാതൃകാ കേന്ദ്രങ്ങളുടെ രൂപകൽപ്പന

യൂറോപ്പിൽ വൈറസ് വ്യാപനത്തിന്റെ രണ്ടാം തരംഗമാണ് ഇപ്പോഴുള്ളത്

വൈറസിന്റെ രണ്ടാം തരംഗം പ്രതിരോധിക്കാൻ യൂറോപ്യൻ രാജ്യങ്ങൾ നടപടികൾ സ്വീകരിച്ചു വരികയാണ് അതേസമയം കോവിഡ് വാക്സിൻ മനുഷ്യരിൽ പരീക്ഷിക്കുന്നത് നവംബർ ഒന്നിന് ആരംഭിക്കുമെന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു

ഇത് ദേശീയ ശരാശരിയേക്കാൾ നാലു ശതമാനം അധികമാണ്

എൽ ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദും ഡൽഹി ക്യാപിറ്റൽസും ഏറ്റുമുട്ടും

ഷാർജയിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ കിങ്സ് ഇലവൻ പഞ്ചാബ് എട്ട് വിക്കറ്റിന് വിജയിച്ചു

ലേലം പെട്ടെന്ന് നിർത്തിവച്ചതിനെക്കുറിച്ച് വ്യാപാരികളോ ഉള്ളി കർഷക അസോസിയേഷനുകളോ കർഷകർക്ക് ട്രിദ്ദ്യോഗിക അറിയിപ്പ് നൽകിയിരുന്നില്ല മൊത്ത വിപണിയിൽ ല്ലേലങ്ങളൊന്നും നടന്നില്ല